ഡി എ ഫിലെ പ്രശ്നങ്ങൾ അവസാനിച്ചതായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാ ണ്ടി

മെഡിക്കൽ കോളജ് ഡോക്ടർമാരുടെ പെൻഷൻ പ്രായം വർധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ കെ ശൈലജ

ചടങ്ങിൽ മുഖ്യ മന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ ചീഫ് സെക്രട്ടറി ഉന്നത ഉദ്യോഗസ്ഥർ ഗവർണറുടെ പത്നി രേഷ്മാ ആരിഫ് വിശിഷ്ട വ്യക്തികൾ തുടങ്ങിയവർ പങ്കെടുത്തു

വിക്രം ലാൻറിൽ നിന്ന് പ്രഗ്യാൻ റോവർ ചന്ദ്രന്റെ ഉപരിതലം തൊടും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചന്ദ്രയാൻ ദൌത്യ പൂർത്തീകരണത്തിന് സാക്ഷിയാവാൻ ബെങ്കലൂരു ഇസ്രോ കേന്ദ്രത്തിലെത്തും

മന്ത്രി കെ രാജുവിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗമാണ് നാല് രൂപ വർധിപ്പിക്കാൻ തീരുമാനിച്ചത്

ഏഴ് രൂപ വർധിപ്പിക്കണമെന്നായിരുന്നു മിൽമ ശിപാർശ ചെയ്തിരുന്ന ത് പാലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി

ഡി

തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നം ലഭിക്കാ ത്തത് നിയമ പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് അദ്ദേഹം ന്യൂഡൽഹി യിൽ പറഞ്ഞു

ജെജോസഫിനെതിരായ പ്രതിഷേധം കാര്യമാ ക്കേണ്ടതില്ലെന്നും കേരള കോൺഗ്രസിലെ ചില പ്രവർത്തകരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും ഉമ്മൻചാണ്ടി വൃക്തമാക്കി പക്വതയില്ലാത്ത സമീപനമാണ് ജോസ് കെ മാണി സ്വീകരിക്കുന്ന തെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് പി

ശരിയായ സമീപനമല്ല അദ്ദേഹത്തിനെന്നും മറ്റുള്ളവരെ ബോധൃപ്പെടുത്തുന്ന പ്രവർത്തനമാണ് നടത്തുന്നതെന്നും പി ജെ ജോസഫ് കോട്ടയത്ത് പറഞ്ഞു തനിക്കെതിരെ കൂകിയാലും മുദ്രാ വാകൃം വിളിച്ചാലും പാലായിൽ യു

എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം വൃക്തമാക്കി പാല ഉപതെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണി സ്ഥാനാർഥിത്വത്തെ ചൊ ല്ലി എൻ സി

കോഴിക്കോട്ട് മാധ്യമ പ്രവർത്തകരോട് സംസാ രിക്കുകയായിരുന്നു മന്ത്രി

പാലാ യിൽ കേരള കോൺഗ്രസിന്റെ ഐഡന്റിറ്റി നഷ്ടമായെന്നും ചിഹ്നം കിട്ടാതിരുന്നത് പ്രചാരണ രംഗത്ത് യു

എഫിനെ പ്രതിസന്ധി യിലാക്കുമെന്നും ശശീന്ദ്രൻ പറഞ്ഞു

മെഡിക്കൽ കോളജ് ഡോക്ടർമാരുടെ പെൻഷൻ പ്രായം വർധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ

നേരത്തെ ഒരു തവണ പെൻഷൻ പ്രായം വർധി പ്പിച്ചതാണെന്ന് മന്ത്രി സ്വകാര്യ വാർത്താ ചാനലിനോട് വൃക്തമാ ക്കി

നീക്കം വൻ അഴിമതിയും കൊള്ളയും നടത്താനാണെന്ന് ചെന്നിത്തല തിരുവനന്തപുരത്ത് വാർത്താ സമ്മേ ളനത്തിൽ പറഞ്ഞു രണ്ട് ദിവസത്തെ റഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി

അയോധ്യ തർക്ക കേസിലെ കോടതി നടപടികൾ തത്സമയം സംപ്രേ ഷണം ചെയ്യാൻ അനുവദിക്കണമെന്ന ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യ ക്ഷനായ ബെഞ്ചിന് വിട്ടതായി രണ്ടംഗ ഡിവിഷൻ ബെഞ്ച് അറി യിച്ചു

നിയമ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്ന യു എ

എ ഭേദഗതി യുടെ നിയമ സാധുത ചോദ്യം ചെയ്യുന്ന ഹർജിയിൽ സുപ്രീംകോ ടതി കേന്ദ്രത്തിന്റെ പ്രതികരണം ആവശ്യപ്പെട്ടു വൃക്തികളെ ഭീകര പ്രവർത്തകരായി പ്രഖ്യാപിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് അധികാരം നൽകുന്നതുൾപ്പെടെ നിയമത്തിലെ ഭേദഗതികൾ ചോദ്യം ചെയ്താണ് ഒരു ഗവൺമെന്റ് ഇതര സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ ബേഠി ബചാവോ ബേഠി പഠാവോ പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾക്കും ജില്ലകൾക്കും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇന്ന് ന്യൂഡൽഹിയിൽപുരസ്കാരങ്ങൾ സമ്മാനിക്കും

പിറവം കണ്ടനാട് പള്ളിത്തർക്ക വിഷയത്തിൽ തൽസ്ഥിതി തുടര ണമെന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി

ഉത്തരവിട്ട ജഡ്ജിക്കെതിരെ നടപടി എടുക്കുമെന്ന് ജസ്റ്റിസ് അരുൺമിശ്ര വ്യക്തമാക്കി തിരുവനന്തപുരത്ത് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക എ ടീമുകളുടെ അവ സാന ഏകദിന മത്സരം മഴ മൂലം വൈകുന്നു

മൂന്ന് മത്സരം വിജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്

തിരുവനന്തപുരത്തെ തോൽപ്പിച്ചാണ് ചേലേമ്പ്ര ഹയർ സെക്കന്ററി കേരളത്തെ പ്രതിനിധീകരിക്കുന്നത്

കേരളത്തിൽ അഞ്ചുദിവസംകൂടി ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യ തയെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു

കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർകോട് ആലപ്പുഴ എ റണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് തിരുവനന്തപുരം ജില്ലക ളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലും യെല്ലോ അലേർ ട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

മംഗലം കാഞ്ഞിരപ്പുഴ വാളയാർ ഡാമുകളുടെ ഷട്ടറുകളുംകൂടുതൽ ഉയർത്തിയിട്ടുണ്ട്

ശിരുവാണി ഭവാനിപ്പു ഴകളിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് മഴ തുടർന്നാൽ അപ്പർ ഭവാനി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാനും സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതിനാൽ പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി

കല്ലുവാതുക്കൽ ഇടിയംവിള സ്വദേശി രഞ്ജിത്ത് ഭര തന്നൂർ സ്വദേശി ചന്തു എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റവരെ കൊ ല്ലം ഗവ മെഡിക്കൽ കോളജിൽ പ്രവേശിപ്പിച്ചു പുലർച്ചെ മൂന്നര മണിയോടെയായിരുന്നു സംഭവം

കൊച്ചി പാലാരിവട്ടം മേൽപാലം നിർമ്മാണം അഴിമതി കേസിൽ പ്രതികളുടെ ജാമൃാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും മൂവാറ്റു പുഴ വിജിലൻസ് കോടതിയാണ് പൊതുമരാമത്ത് മുൻ സെക്രട്ടറി ടി

പ്രതികളുടെ വിജിലൻസ് കസ്റ്റഡി കാലാവധി ഇന്നലെ അവസാനി ച്ചിരുന്നു സ്വർണ്ണത്തിന് വീണ്ടും വില കുറഞ്ഞു

പ്രകൃതിയെക്കുറിച്ചും മണ്ണിനെക്കുറിച്ചും കർഷകർ ശാസ്ത്രീയമായി പഠിച്ച് മുന്നേറ്റം നടത്തണമെന്ന് പ്രൊഫ

ജൈവ കർഷകർക്ക് സേവന വേതനം നൽകണമെന്ന് തന്റെ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ റിപ്പോർട്ടിൽ പറയാത്ത കാര്യങ്ങളാണ് പ്രചരിക്കുന്നതെന്ന് മാധവ് ഗാഡ്ഗിൽ കണ്ണൂർ കേളകത്ത് പറഞ്ഞു കണ്ണൂർ ജില്ലാതല ഓണോത്സവം നാളെ വൈകീട്ട് ടൌൺ സ്ക്വയ റിൽ മന്ത്രി ഇ

മന്ത്രിമാരായ രാമ ചന്ദ്രൻ കടന്നപ്പള്ളി കെ

ഓണത്തോടനുബന്ധിച്ച് തൃശൂർ ജില്ലയിലെ ഹോട്ടലുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഇതുവരെ ഏഴു പതിനായിരം രൂപ പിഴ ഈടാക്കി

ഓണത്തിരക്ക് മുൻനിർത്തി കണ്ണൂർ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി നഗരത്തിലേക്ക് വാഹനവുമായി വരുന്നത് കുറയ്ക്കണമെന്ന് കണ്ണൂർ ട്രാഫിക്ക് സേഫ്റ്റി കമ്മിറ്റി അറി യിച്ചു സ്കൂളുകളിലെ കൊഴിഞ്ഞ്പോക്ക് തടയുന്നതിനായി വയനാട് കുടുംബശ്രീ അമ്മക്കളരി പ്രത്യേക പദ്ധതി നടപ്പിലാക്കുന്നു ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസുകളിലെ കുട്ടികളിൽ മലയാള അക്ഷരം ഉറക്കാത്തവർ അടിസ്ഥാന ഗണിതം അറിയാത്തവർ എന്നി വർക്കായാണ് പ്രത്യേക പരിശീലന പരിപാടി ഓരോ സ്കൂളിലേയും അദ്ധ്യാപകരുടെ സഹായത്തോടെ കണ്ടെത്തിയ കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം ലഭിച്ച അമ്മമാരാണ് ഒഴിവ് ദിവസങ്ങളിൽ ക്സാസ്സ് നൽകുന്നത്

മറ്റന്നാൾ മന്ത്രി ഡോ

ജലീൽ അതളൂരിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും

മമ്പറം സ്വദേശി അബ്ദുൾ സമദ് മാട്ടൂലിലെ മുനീസ് എന്നിവരാണ് പിടിയിലായത് ഇവർക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ദോഹയിലേക്ക് പോകാനെത്തിയതായിരുന്നു ഇരുവരുമെന്ന് പോലീസ് പറഞ്ഞു പ്രകൃതിക്കും മനുഷ്യനും ഹാനികര്വും വിവേചന രഹിതവുമാ യ ഖനനത്തിനെതിരെ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി മലയോ ര സംരക്ഷണ സമിതി നാളെ വൈകീട്ട് ബഹുജന കൺവൻഷൻ സംഘടിപ്പിക്കും കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോ

വി സജീവ് ഉദ്ഘാടനം ചെയ്യും